ഷോപ്പിംഗ് മാളുകൾ എന്നിവു തുറക്കാൻ അനുമതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്ന് കാര്യത്തിൽ സംസ്ഥാനങ്ങളോട് ആലോചിച്ച് തീരുമാനം

ശാസ്ത്രജ്ഞരുമായി പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക്

സ്കൂൾ കോളേജുകൾ പരിശീലന സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് രണ്ടാം ഘട്ടത്തിൽ അനുമതി നൽകും സംസ്ഥാനങ്ങളുമായി ആലോചിച്ച് ജൂലൈ മാസത്തോടെ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളും അന്താരാഷ്ട്ര വിമാന സർവ്വീസുകൾ മെട്രോ റെയിൽ സിനിമാ തീയേറ്റർ ജിംനേഷ്യം സിമ്മിംഗ് പൂളുകൾ എന്നിവയ്ക്ക് മൂന്നാംഘട്ടത്തിൽ സാഹചരൃം വിലയിരുത്തിയ ശേഷമേ അനുമതി നൽകു

അവശ്യ സർവ്വീസുകൾക്ക് കർഫ്യൂ ബാധകമല്ല കണ്ടയിൻമെന്റ് സോണുകളിൽ അവശ്യ സർവ്വീസുകൾക്ക് മാത്രമാണ് അനുമതി സംസ്ഥാനങ്ങൾക്ക് സ്ഥിതി വിശകലനം ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം അന്തർജില്ലാ അന്തർ സംസ്ഥാന യാത്രകൾക്ക് നിയന്ത്രണമില്ല

എന്നാൽ പൊതുജനാ രോഗ്യം കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം

ജനങ്ങൾ പുറത്തിറ്റങ്ങുമ്പോൾ മാസ്ക് നിർബന്ധ മായും ഉപയോഗിക്കണം

കേന്ദ്ര മാർഗ്ഗ നിർദ്ദേശങ്ങളിൽ അയവുവരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി യില്ല മാർഗ്ഗ നിർദ്ദേശം നടപ്പിലാക്കുന്നുണ്ടെന്ന് ജില്ലാ മജിസ്ട്രേറ്റുമാർ ഉറപ്പ് വരുത്തണം

രാജ്യത്ത് ലോക്ഡൌൺ നീട്ടിയ സാഹചരൃത്തിലാണ് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലിന്റെ നടപടി

മഹാമാരി ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഒമ്പതാം സ്ഥാനത്താണ് മഹാരാഷ്ട്ര തന്നെയാണ് സംസ്ഥാനങ്ങളിൽ മുന്നിലുള്ളത്

പ്രധാനമന്ത്രിയുടെ പ്രഭാഷണം കഴിഞ്ഞയുടൻ ആകാശവാണിയുടെ കേരളനിലയങ്ങളിൽ അതിന്റെ മലയാള പരിഭാഷ കേൾക്കാം രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണമുണ്ടാകും

തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ഉൌർജ്ജസ്വലത യോടെയും ജനങ്ങൾ കൊറോണയെ നേരിട്ടതായും ഇന്ത്യക്കാരുടെ കൂട്ടായ ശക്തിയും കഴിവും സമാനതകളില്ലാത്തതാണെന്നും പ്രധാനമന്ത്രി കത്തിൽ പറഞ്ഞു

അതിനിടയിൽ ലോക്ഡൌൺ ഇളവുകൾ സംബന്ധിച്ച് സംസ്ഥാന തീരുമാനം ഇന്നുണ്ടാകും

ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നതായി ജമ്മുവിലെ പ്രതിരോധ വക്താവ് പറഞ്ഞു